കണ്ണൂർ കനകമല ഗൂഢാലോചനാക്കേസിൽ ആറുപ്രതികൾ കുറ്റക്കാരാണെന്ന് കൊച്ചി എൻ ഐ എ കോടതി കുറ്റിപ്പുറം പാലത്തിൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഒഴി വാക്കി

മഹാരാഷ്ട്ര ഗവൺമെന്റ് രൂപീകരണക്കേസിൽ സുപ്രീംകോ ടതി ഉത്തരവ് നാളെ രണ്ടുദിവസം കേസ് പരിഗണിച്ച കോട തിയുടെ മൂന്നംഗ ഡിവിഷൻ ബെഞ്ചിൽ പതിനൊന്നേ മുക്കാലോടെ വാദം പൂർത്തിയായി നാളെ രാവിലെ പത്തരയ്ക്ക് കേസിൽ വിധി പറയുമെന്ന് ബെഞ്ച് അറിയിച്ചു ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ച ഗവർണറുടെ നടപടിക്കെതിരെയാണ് ശിവ സേന എൻ സി പി കോൺഗ്രസ് സഖ്യം സുപ്രീംകോടതിയെ സമീ പിച്ചത് അവധി ദിവസമായിട്ടും ഞായറാഴ്ച ബെഞ്ച് പ്രത്യേകം ചേർന്നാണ് കേസ് പരിഗണിച്ചത്

വിശ്വാസ വോട്ടെടുപ്പിന് രണ്ടാഴ്ചത്തെ സമയം വേണമെന്ന് റോഹ്ത്തഗി ആവശ്യപ്പെട്ടു മഹാരാഷ്ട്ര സംഭവങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചവരെ നിർത്തി വെച്ചു ലോക്സഭ സമ്മേളിച്ച ഉടൻ കോൺഗ്രസ് അംഗങ്ങൾ നടു ത്തളത്തിലിറങ്ങി മുദ്രാവാകൃം മുഴക്കി കുതിരക്കച്ചവടവും വൃത്തി കെട്ട രാഷ്ട്രീയവും അവസാനിപ്പിക്കുക ഭരണഘടനയും ജനാ ധിപത്യവും സംരക്ഷിക്കുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തി യായിരുന്നു പ്രതിഷേധം ജനാധിപത്യത്തെ കൊലചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്ന വലിയ ബാനറുമായി നടുത്തളത്തിലിറങ്ങിയ ഹൈബി ഈഡ നോടും ടി

എന്നാൽ അവർ അതിന് തയ്യാറാകാത്ത തിനെ തുടർന്ന് സഭയിൽ നിന്ന് ഇവരെ നീക്കം ചെയ്യാൻ മാർഷൽമാരോട് സ്പീക്കർ നിർദേശിച്ചു ഇതേതുടർന്ന് മാർഷൽമാരും അംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി സ്പീക്ക റുടെ നടപടിയിൽ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം പ്രതിഷേധ വുമായി രംഗത്ത് വന്നതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള തടസ്സപ്പെട്ടു സുൽത്താൻബത്തേരിയിൽ വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും കഴിഞ്ഞ ദിവസം ജഡ്ജി സ്കൂളിൽ നേരിട്ടെത്തി വിവരം ശേഖരിച്ചതിന്റെ അടിസ്ഥാ നത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ബത്തേരി സർവജന ഹയർസെക്കണ്ടറി സ്കൂളിൽ വിദ്യാർത്ഥിക ളുടെ പ്രതിഷേധം ആരോപണ വിധേയരായ അധ്യാപകരെ പിരി ച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു സ് കൂൾഗെയിറ്റിൽ ഷെഹലയുടെ ഫോട്ടോയുമായാണ് വിദ്യാർത്ഥികളുടെ സമരം

ഇവർക്കെതിരെ യു

പ്രതികൾ തീവ്രവാദ പ്രവർത്തകരാണെന്നും കോടതി വിലയിരുത്തി ഒരാളെ കുറ്റക്കാ രനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു ആറാം പ്രതി ജാസിമിനെയാണ് കോടതി കുറ്റവിമുക്തനാക്കിയത് ശിക്ഷ ഉടൻ പ്രഖ്യാപിക്കും പ്രതികൾക്കെതിരെ ചുമത്തിയ ഐ എസ് ബന്ധവും രാജ്യ ദ്രോഹക്കുറ്റവും തെളിയിക്കാനായില്ല

പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളെയും ജഡ്ജിമാ രെയും അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ് കേരള തമിഴ്നാട് സ്വദേശികളായ ഏഴ് പേരാണ് പ്രതി കൾ

ഞായറാഴ്ച രാത്രി എത്തിയ മാവോയിസ്റ്റുകൾ മേപ്പാടി മുണ്ട ക്കൈ ടൌണിലും പരിസര പ്രദേശങ്ങളിലും ബാനറുകളും പോസ്റ്റ റുകളും ഒട്ടിച്ചു തോട്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെ തിരെ പ്രതികരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് തമിഴ് ഭാഷയിലാണ് പോസ്റ്ററുകൾ പതിച്ചത് മാവോയിസ്റ്റുകൾക്കായി പ്രദേശത്ത് പൊലീസ് തെരച്ചിൽ ഊർജ്ജിതമാക്കി സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളെയും മികവിന്റെ കേന്ദ്ര ങ്ങളാക്കുന്ന പ്രവൃത്തി ആറുമാസത്തിനകം പൂർത്തിയാകുമെ ന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞൂ കോഴി ക്കോട് പയ്യോളിയിൽ സ്കൂൾ കെട്ടിടത്തിന് തറക്കില്ലിടുകയായി രുന്നു മന്ത്രി ചേളാരി ഗവ വൊക്കേഷണൽ ഹയർസെക്കൻഡറി സ്കൂളിൽ നബാർഡിന്റെ സഹായത്താൽ രണ്ടേമുക്കാ ൽക്കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മൂന്ന് നില കെട്ടിടം ഇന്ന് മന്ത്രി സി

ആറ് ക്ലാസ് മുറികൾ ഡിസൈനിങ് ആന്റ് പ്രിൻറിങ് ലാബ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ലാബ് ഫിസിക്സ് കെമിസ്ട്രി ലാബുകൾ വി എച്ച്

ഈമാസം ആറിനാണ് അറ്റകുറ്റപ്പണികൾക്കായി പാലത്തിലൂടെയുള്ള രാത്രിഗതാഗതം നിരോധിച്ചത് ശബരിമല തീർഥാടനം ആരംഭിച്ചതോടെ കോഴിക്കോട് ഭാഗത്തുനിന്നുവരുന്ന വാഹനങ്ങൾ കടത്തിവിടാൻ ആരംഭിച്ചിരുന്നു ഇതുവരെയുള്ള പണികൾ ഇന്നലെ രാവിലെ പൂർത്തിയാക്കിയതിനുശേഷമാണ് രാത്രി ഗതാഗതനിരോധനം നീക്കിയത് ഭാരത് പെട്രോളിയം കോർപറേഷൻ ഓഹരി വില്പനയ്ക്കെ തിരെ തൃപ്പൂണിത്തുറയിൽ നിന്ന് യു ഡി എഫ് ആരംഭിച്ച ലോങ് മാർച്ച് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു

എൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് അട ച്ചൂപൂട്ടാൻ യു

ഓഫ് ക്യാമ്പസിന് അംഗീകാര മില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആരംഭിച്ച മുഴുവൻ കോഴ്സു കളും അവസാനിപ്പിക്കാനാണ് യു ജി

ഇന്നാ രംഭിക്കാനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി ഹൈദരബാദിനെ നേരിടും ഇന്നലെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ഒഡീഷ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാ ശിച്ചു

തുടർച്ചയായി മൂന്നാം തവണയാണ് എറണാകുളം കിരീടമണിയുന്നത്

തൊഴിൽവകുപ്പിന്റെ ശ്രേഷ്ഠബാലൃം പദ്ധതിയുടെ തൃശൂർ ജില്ലാതല പ്രഖ്യാപനം ഇന്ന് പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷ ണൽ ഹയർ സെക്കന്റി സ്കൂളിൽ മന്ത്രി എ

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് ഫണ്ട് സമർപ്പണവും പ്രതിഭകളെ ആദരിക്കലും ഇതോടൊപ്പം നടക്കും അങ്കമാലി ബാങ്ക് കവലയിൽ രാവിലെ സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് നാലുപേർ മരിച്ചു ദേശീയപാത മുറി ച്ചുകടക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷയിൽ അമിതവേഗത്തിൽ വന്ന സ്വകാര്യ ബസ് ഇടിച്ചായിരുന്നു അപകടം ഇടിയുടെ ആഘാത ത്തിൽ ഓട്ടോയിൽ സഞ്ചരിച്ച അങ്കമാലി സ്വദേശികളായ മേരി ജോർജ്ജ് മേരി മത്തായി റോസി തോമസ് എന്നിവരും ഓട്ടോ ഡ്രൈവർ ജോസഫുമാണ് മരിച്ചത് രാവിലെ ഏഴരയോടെയായി രുന്നു അപകടം മെഡിക്കൽ കോളജുകളിൽ എം

എസ് സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന കോഴിക്കോട് സ്വദേശികളുടെ പരാതിയിൽ പന്നിയങ്കര പോലീസ് കേസെടുത്തു നിലമ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എജുക്കേഷൻ ട്രസ്റ്റ് നടത്തിപ്പു കാരനായ സിബിച്ചൻ വയലിലിനെതിരെയാണ് രണ്ട് പരാതികളിൽ കേസെടുത്തത് മറ്റ് കേസുകളിൽ റിമാൻഡിലുള്ള ഇയാളുടെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തും കൂടത്തായ് കൊലപാതക പരമ്പരക്കേസിലെ മൂന്നാം പ്രതി പ്രജികുമാറിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കേസിലെ രണ്ടാം പ്രതി മാത്യുവിന് സയനൈഡ് നൽകിയത് പ്രജികുമാറാ യിരുന്നു കേരള സംഗീത അക്കാദമിയുടെയും ജില്ലാ ടൂറിസം പ്രമോ ഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ നൃത്യതി ദേശീയ നൃത്തോത്സവം കോഴിക്കോട്ട് ആരംഭിച്ചു മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒഡീസി അവതരിപ്പിച്ച് അഭയ ലക്ഷ്മി തുടക്കമിട്ട നൃത്തോത്സവത്തിൽ ഡോ രാജശ്രീ വാര്യർ ഭരതനാടൃം അവതരിപ്പിച്ചു

അമിത പ്രകൃതിചൂഷണമാണ് പ്രളയം പോലെ ദുരന്തങ്ങൾക്ക് കാരണമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻമുന്നിട്ടിറങ്ങണമെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റും ജനശ്രീ മിഷൻ സംസ്ഥാന ചെയർമാനുമായ എം എം ഹസൻ പറഞ്ഞു ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കോഴിക്കോട് ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്കൃത വ്യാകരണ പണ്ഡിതൻ കെ

വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് പുലർച്ചെ പട്ടാമ്പിയിലായിരുന്നു അന്ത്യം

പാവരട്ടി സംസ്കൃത കോളേജ് കോഴിക്കോട് സെന്റ് ജോസഫ്സ് ഗണപത് താനൂർ ദേവധാർ ഹൈസ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു

കൊയിലാണ്ടിയിൽ മന്ത്രി സി രവീന്ദ്രനാഥിനെതിരെ എ ബി വി പി പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം കൊയിലാണ്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർസെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ് ഘാടന ചടങ്ങിനിടെയായിരുന്നു സദസ്സിലുണ്ടായിരുന്ന ഏതാനും പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധ മുദ്രാവാകൃമുയർത്തിയത് പൊലീസെത്തി ഇവരെ നീക്കം ചെയ്തു ഭാരതീയ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോ വിക്രം സാരാഭായുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തിരു വനന്തപൂരത്ത് വിവിധ ബഹിരാകാശ കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യ ത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വി എച്ച്

രണ്ടു ദിവസങ്ങളിലും നടത്തുന്ന ബഹിരാകാശ ശാസ്ത്രപ്ര ദർശനം കാണാൻ പൊതുജനങ്ങൾക്കും അവസരം ഒരുക്കിയിട്ടു ണ്ട് കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് മലപ്പുറം തൃശൂർ ജില്ലകളിലെ യാത്രക്കാരെയും വ്യവസായ സംരംഭകരെയും ഉൾപ്പെ ടുത്തി അടുത്ത മാസം യോഗം ചേരും

കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സമ്മേളനം ചേർപ്പിൽ ഇന്ന് ആരംഭിക്കും പഴയതും പുതിയതുമായ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു

ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ വി കെ സജീവൻ നേതൃത്വം നൽകും